ത തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്നുമുതൽ ലോക്ക് ഡൌൺ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെ ചില പ്രദേശങ്ങൾ അതീവ ഗുരുതര സാഹചര്യം നേരിടുകയാണെന്നും മുഖ്യമന്ത്രി

ത ട്രിപ്പിൾ ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ച എറണാകുളം ചെല്ലാനം പഞ്ചായത്തിൽ പ്രത്യേക പരിശോധന ടീമിനെ ഏർപ്പെടുത്തും ത സംസ്ഥാനത്ത് ബാങ്കുകൾക്ക് ഇന്നു മുതൽ ശനിയാഴ്ചകളിൽ അവധി

വാർത്തകൾ വിശദമായി കോവിഡ് രോഗമുക്തി നിരക്കിൽ ലോകത്ത് ഇന്ത്യ മുൻപന്തിയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്ത് താഴേതട്ടിൽ നിലനിൽക്കുന്ന ആരോഗ്യ സംവിധാനമാണ് രോഗമുക്തി നിരക്കിൽ ഇന്ത്യയെ മുന്നിലെത്തിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെ സാമ്പത്തിക സാമൂഹിക സമിതിയുടെ ഈ വർഷത്തെ ഉന്നതതല യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഗവൺമെന്റിന്റേയും പൌരസമൂഹത്തിന്റേയും ശ്രമങ്ങൾ സംയോജിപ്പിച്ച് കോവിഡിനെതിരായ പോരാട്ടം ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാനാണ് ഇന്ത്യ ശ്രമിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇന്ത്യ വിജയിക്കുമ്പോൾ ആഗോള ലക്ഷ്യം കൈവരിക്കുന്നതിലെ മുന്നേറ്റമായി അത് മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രെര തിരുവനന്തപുരം ജില്ലയിലെ തീര പ്രദേശങ്ങളിൽ അതിവേഗം കോവിഡ് രോഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് മുതൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

പെരുമാതുറ മുതൽ വിഴിഞ്ഞം വരെ രണ്ടാമത്തെ സോണും വിഴിഞ്ഞം മുതൽ ഊരമ്പ് വരെ മൂന്നാമത്തെ സോണുമാണ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ അതീവ ഗുരുതര സാഹചര്യം നേരിടുകയാണ് തീരമേഖലയിലെ പുല്ലുവിള പൂന്തുറ പ്രദേശങ്ങളിൽ സമൂഹ വ്യാപനമുണ്ടായതായി മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രുഭ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുന്നതിന് സിറ്റി പൊലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തീരമേഖലയിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാം മത്സ്യബന്ധനം സംബന്ധിച്ച് നിലവിലെ നിയന്ത്രണങ്ങൾ തുടരും

കണ്ടെയിൻമെന്റ് സോണുകളിൽ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ യാത്ര അനുവദിക്കൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ ക്ലസ്റ്റർ കണ്ടെയിൻമെന്റ് സ്ട്രാറ്റജി നടപ്പാക്കി രോഗവ്യാപനം തടയാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇവ രൂപപ്പെട്ട സ്ഥലങ്ങളിലും രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കേന്ദ്രീകൃത രീതിയിൽ ലോക്ക്ഡൌൺ നടപ്പാക്കുകയും മറ്റു പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രുദ കോവിഡുമായി ബന്ധപ്പെട്ട് പരക്കുന്ന നിരവധി തെറ്റിദ്ധാരണകളും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു

ത ഒരിക്കൽ വന്ന് ഭേദപ്പെട്ടാൽ പിന്നെ സുരക്ഷിതമാണ് ത മറ്റു രോഗങ്ങൾ ഉള്ളവർ മാത്രമാണ് കോവിഡ്മൂലം മരിക്കുന്നത് തുടങ്ങി പ്രചാരണങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്നും അതിന് ശാസ്ത്രത്തിന്റെ പിൻബലമില്ലെന്ന് നാം ഓർമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിലെ ചെല്ലാനം പഞ്ചായത്തിൽ പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ ടെസ്റ്റിംഗ് ടീമിനെ ചുമതലപ്പെടുത്താൻ മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു പ്രദേശത്ത് ആക്ടീവ് സർവെയ്ലൻസ് ശക്തമാക്കും ലൈസൻസ് ഇല്ലാതെയുള്ള അനധികൃത മത്സ്യവില്പനയും നിരോധിച്ചിട്ടുണ്ട്

ജില്ലയിൽ അനുദിനം കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

നാലുപേരുടെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല രുര വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ദിവസമായിരുന്നു ഇന്നലെ

രുമ കൊല്ലം ജില്ലയിൽ സമ്പർക്കം വഴി രോഗബാധയും ഉറവിടം അറിയാത്ത കേസുകളും വർധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു

രും കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബാങ്കുകൾക്ക് ഇന്നു മുതൽ ശനിയാഴ്ചകളിൽ അവധി പ്രഖ്യാപിച്ച് ചീഫ് സെക്രട്ടറി ഉത്തരവായി നിലവിൽ ബാങ്കുകളുടെ രണ്ടാം ശനി നാലാം ശനി ദിവസങ്ങളിലെ അവധികൾക്ക് പുറമേയാണിത്

സംസ്കാരം ഇന്ന് രാവിലെ പത്തിന് വീട്ടുവളപ്പിൽ നടക്കും

ജനപ്രിയ നോവലുകളിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹമെന്നും സാഹിത്യ ആസ്വാദനത്തിന്റെ തലത്തിലേക്ക് വലിയൊരു വിഭാഗം ആളുകളെ ഉയർത്തിയെടുക്കുന്നതിന് സുധാകർ മംഗളോദയത്തിന്റെ രചനകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രുമ ഈ വർഷം ഐ ഐ ടി പ്രവേശനത്തിന് പ്ലസ് ടു പരീക്ഷയിലെ മാർക്ക് മാനദണ്ഡമാക്കില്ലെന്ന് മാനവശേഷി വികസന മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിശാങ്ക് പറഞ്ഞു

എം

ദേദ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഹജ്ജ് യാത്ര മുടങ്ങിയ തീർത്ഥാടകരുടെ പാസ്പോർട്ടുകൾ തിരിച്ചെത്തിക്കുന്നതിന് നടപടി ആരംഭിച്ചതായി ഹജ്ജ് കമ്മറ്റി ചെയർമാൻ അറിയിച്ചു ഹജ്ജ് യാത്രയ്ക്കായി ഓരോരുത്തരും അടച്ച രണ്ട് ലക്ഷത്തി ആയിരം രൂപ ഒരു മാസത്തിനകം തിരികെ ലഭ്യമാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു രുമ സംസ്ഥാനത്ത് ഇന്ന് കനത്തമഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർകോട് എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ഫെലോഷിപ്പ് ഗുരുപൂജ അവാർഡ് യുവപ്രതിഭാ പുരസ്കാരം എന്നിവയാണ് പ്രഖ്യാപിച്ചത് മറത്ത് കളി ആചാര്യൻ പി

മാധവൻ പണിക്കർക്ക് സമഗ്ര സംഭാവനയ്ക്ക് പ്രത്യേക പുരസ്കാരം നൽകുമെന്നും അക്കാദമി ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു രുമ മലയിടിച്ചിൽ ഉണ്ടായ ദേശീയപാതയിലെ ഇടുക്കി ദേവികുളം ലോക്ക്ഹാർട്ട് ഗ്യാപ്പിൽ എൻ ഐ ടി സംഘം പരിശോധന നടത്തി പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും ആളുകൾ മാറി താമസിക്കുന്നത് ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കേണ്ടിവരുമെന്നും സംഘം വ്യക്തമാക്കി